മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽനിന്ന് രാജിവെച്ചു പാർട്ടി എൻ

എയിൽ തുടരും ത്രിപുരയിൽ ബിപ്ലബ് ദേബിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രി സഭ ഇന്ന് അധികാരമേൽക്കും കേരളത്തിൽനിനിന്ന് എ

അംഗങ്ങളുടെ പട്ടികയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരം പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം

ലോക തൊഴിലാളിദിനമായ മേയ് ഒന്ന് മുതൽ സംസ്ഥാനത്ത് നോക്കു കൂലി സമ്പ്രദായം അവസാനിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത തൊഴിലാളി സംഘടനകളുടെ യോഗ ത്തിലാണ് ഇതുസംബന്ധിച്ച ധാരണയായത് നോക്കുകൂലി സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പൂർണ പിന്തുണ പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു സംഘടനകൾ തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന പ്രവണതയും മേയ് ഒന്ന് മുതൽ അവസാനിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായതായി മുഖൃമന്ത്രി പറഞ്ഞു

മേയ് ഒന്നിന് മുമ്പ് സംസ്ഥാനതല യോഗത്തിന്റെ തുടർച്ചയായി എല്ലാ ജില്ലയിലും കള ക്ടർമാർ തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചുചേർക്കും യന്ത്ര വൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സഹായിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെന്റ് ആലോചി ക്കുമെന്നും മുഖ്യന്ത്രി പറഞ്ഞു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോഴും പദ്ധ തികൾ വരുമ്പോഴും അതത് പ്രദേശത്തെ തൊഴിലാളികൾക്ക് കഴിയുന്നത്ര തൊഴിൽ ലഭിക്കണം എന്നതാണ് ഗവൺമെന്റ് നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകണമെന്ന് ആവശ്യം നട പ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് തെലുങ്കുദേശം പാർട്ടി മന്ത്രിമാർ കേന്ദ്രമ ന്ത്രിസഭയിൽനിന്ന് രാജിവെച്ചു അശോക് ഗജപതിരാജു വൈ

ചൌധ രി എന്നിവരാണ് ഇന്നലെ വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജി സമർപ്പിച്ചത് എന്നാൽ ടി

എയിൽ തുടരുമെന്ന് രാജി സമർപ്പിച്ചശേഷം ഗജപതിരാജു അറിയിച്ചു പ്രത്യേക പദവി വേണമെ ന്നത് വൈകാരിക പ്രശ്നമാണെന്നൂം എന്നാൽ കേന്ദ്രം അതനുവദിക്കു ന്നില്ലെന്നും വൈ

ചൌധരി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആന്ധ്രാപ്രദേശ് മുഖ്യന്ത്രിയും ടി

രാജി തീരുമാനം പുനപരിശോധിക്ക ണമെന്ന നരേന്ദ്രമോദിയുടെ ആവശ്യം ചന്ദ്രബാബു നായിഡു അംഗീക രിച്ചില്ലെന്നാണ് റിപ്പോർട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹി യിലെത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി ടി

കേന്ദ്രങ്ങൾ അമരാവതിയിൽ പറഞ്ഞു ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ യുള്ളൂവെന്നും പ്രധാനമന്ത്രി അറിയിച്ചതായി അവർ വെളിപ്പെടുത്തി ത്രിപുരയിൽ ബിപ്തബ് ദേബിന്റെ നേതൃത്വത്തിൽ ബി

മന്ത്രി സഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അസം റൈഫിൾസ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തഥാഗത് റോയ് പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി

അധ്യക്ഷൻ ഉൾപ്പെടെ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ബി

കേന്ദ്രങ്ങൾ അഗർത്തലയിൽ അറ യിച്ചു ആദ്യമായാണ് ബി

ത്രിപുരയിൽ അധികാരത്തിലെത്തുന്ന ത്

അംഗങ്ങളുടെ പട്ടികയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അംഗീകാരം നൽകി

കേരള ത്തിന്റെ ചുമതല വഹിക്കുന്ന എ

ജനറൽ സെക്രട്ടറി മുഗുൾ വാസനിക് പാർട്ടി തിരഞ്ഞെടുപ്പ് അതോറിറ്റി ചെയർമാൻ മുല്ലപ്പള്ളി രാമ ചന്ദ്രനുമായി നടത്തിയ ചർച്ചയെത്തുടർന്നാണ് പട്ടിക അംഗീകരിച്ചത്

ഇ

അപേക്ഷ സമർപ്പിക്കാൻ ആധാർ കാർഡ് നിർബന്ധമല്ലെന്ന സുപ്രീംകോടതി വിധിയെത്തുടർന്നാണ് സമയപരിധി നീട്ടിയത്

വ്യക്തമാക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രാദേശിക രാജ്യാന്തര ചല ച്ചിത്രോത്സവത്തിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കമാകും

ബർലിൻ രാജ്യാന്തര ചല ച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഹംഗേറി യൻ ചിത്രം ഓൺ ബോഡി ആന്റ് സോൾ ആണ് ഇന്ന് രണ്ട് തീയ്യറ്റുക ളിലും ഉദ്ഘാടനച്ചിത്രമായി പ്രദർശിപ്പിക്കുന്നത്

ചന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചാമത് എഴുത്തച്ചൻ പുരസ്കാരം കവി സച്ചിദാനന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സമ്മാനിച്ചു സാർവ്വ ദേശീയ സാഹിത്യത്തിന് കേരളം നൽകിയ വിലപ്പെട്ട സംഭാവനകളിലൊ ന്നാണ് സച്ചിദാനന്ദനെന്ന കവിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എഴുത്തും എഴുത്തുകാരനും എഴുത്തിന്റെ നിമിഷങ്ങളും ഒന്നായിത്തീരുന്ന എഴു ത്തച്ഛനെഴുതുമ്പോൾ എന്ന പ്രശസ്ത കവിതയെഴുതി എഴുത്തച്ഛന്റെ നേർ പിന്മുറക്കാരനായിത്തീർന്ന സച്ചിദാനന്ദന് ഈ പുരസ്കാരം സമ്മാനിക്കു ന്നത് അത്യന്തം സന്തോഷകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്രഥമ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് ലോക പ്രശസ്ത ഫോട്ടോ ജേണലിസ്റ്റ് നിക്ക് ഉട്ടിന് തിരുവനന്ത പുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം ഫോട്ടോഗ്രാഫിയുടെ ദുരു പയോഗം അടുത്ത കാലത്തായി വർധിച്ചുവരുന്നുണ്ടെന്നും വിഷലിപ്ത മായ രാഷ്ട്രീയ പ്രചരണത്തിന് ഫോട്ടോഗ്രാഫിയെ ഉപയോഗിക്കരു തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള മീഡിയ അക്കാദമി ഇൻഫർമേ ഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സഹകരണത്തോടെ തിരുവനന്ത പുരം ടാഗോർ സെന്റിനറി ഹാളിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വാർത്ത ചിത്രമേളയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സരിത എസ് നായരുടെ റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചല്ല സോളാർ കമ്മിഷൻ റിപ്പോർട്ട് എന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ബോധിപ്പി ച്ചു റിപ്പോർട്ടിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഹർജി യിലാണ് ഗവൺമെന്റ് ഇക്കാര്യം ബോധിപ്പിച്ചത് കേസ്സിൽ കക്ഷി ചേരാൻ പ്രതി സരിതാ നായരും അപേക്ഷ നൽകിയിട്ടുണ്ട് കേസ്സ് വാദം ഇന്നും തുടരും

ലാവ്ലിൻ കേസിൽ പിണറായി വിജയനടക്കം പ്രതി കളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സി

ഐ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും പിണറായി വിജ യനുവേണ്ടി പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് കേസിൽ ഹാജരാകുന്നത് ലക്ഷദ്വീപ് തീരത്തിനടുത്ത് പുറംകടലിൽ ചരക്ക് കപ്പലിന് തീപ്പിടിച്ച് ഒരാൾ മരിച്ചു മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു

തായ്ലന്റ് സ്വദേശി സുക്സെൻ പാനിപോണാണ് മരിച്ചതെന്ന് ഷിപ്പിങ് ഡയറക്ടറേറ്റ് ജനറൽ തിരുവന ന്തപുരത്ത് അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ കോസ്റ്റ്ഗാർഡ് കപ്പൽ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരം മെഡിക്കൽകോളേജ് ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു

ചരക്ക് കപ്പലിലെ മറ്റ് ജീവനക്കാരെയും കോസ്റ്റ്ഗാർഡ് രക്ഷപ്പെടുത്തി

ആദൃ കളിയിൽ ശ്രീലങ്കയോട് ഇന്ത്യ തോറ്റിരുന്നു സുൽത്താൻ അസലൻഷാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് അയർലന്റിനെ നേരിടും മലേഷ്യയിലെ ഇപ്പോയിൽ നടക്കുന്ന മത്സര ത്തിൽ ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യക്ക് വൻ വിജയം അനി വാര്യമാണ് മിനർവ പഞ്ചാബ് എഫ്

ഐ ലീഗ് ചാമ്പ്യൻമാരായി പഞ്ച്കുള യിൽ നടന്ന അവസാന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സിനെ ഏകപ ക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് മിനർവ ജേതാക്കളായത്

മഹാത്മാഗാന്ധി സർവ്വകലാശാല കലോത്സവം അശാന്തം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും

വിവിധ അക്കാദമികൾ ചേർന്നു സംഘടിപ്പിക്കുന്ന കവിതാ കാർണി വെലിന് പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഇന്ന് തുടക്കമാ കും മൂന്ന് ദിവസത്തെ കാർണിവെൽ ക്യൂറേറ്റർ ഫോട്ടോഗ്രാഫർ റാം റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും

ദേശീയ വനിതാ വാരാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശുവികസന വകുപ്പ് കാസർക്കോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സൈക്കിൾ റാലിക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി

റാലി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും വൈകിട്ട് മാനാഞ്ചിറ സ്കയറിൽ സ്വീകരണം നൽകും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ ന്യൂനപക്ഷ പദവി ചൂഷണോപാധി ആക്കാതെ രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി അതത് സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മന്ത്രി ഡോ

ന്യൂനപക്ഷ വിദ്യാഭ്യാസ ശാക്തീ കരണം വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ തിരുവന ന്തപുരത്ത് നടന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ദേശീയ പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി ജില്ലാ കളക്ടർ അമിത് മീണ അറിയിച്ചു

പൊന്നാനി താലൂക്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഉടൻ ഉണ്ടാ കുമെന്നും കളക്ടർ അറിയിച്ചു വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനു വദിച്ച ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തിയില്ലെന്ന് വഴി യോര കച്ചവട ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് ആരോപി ച്ചു

ലഹരിയുടെ ദുരുപയോഗത്തിൽ രാജ്യത്ത് രണ്ടാംസ്ഥാനം കേരള ത്തിനാണെന്ന് എക്സൈസ് കമ്മിഷണർ ഋഷിരാജ്സിങ് ചേർത്തലയിൽ പറഞ്ഞു വീടുകളിലെ ഏകാന്തതാണ് കുട്ടികളെ മയക്കുമരുന്നുപയോ ഗത്തിലേക്ക് തള്ളിവിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട ജില്ല ഐ

ആർ കൃഷി വിജ്ഞാന കേന്ദ്രം ദീന ദയാൽ ഉപാധ്യായ കൃഷി വിജ്ഞാൻ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായി

കൊച്ചി കുമ്പളത്ത് കായലിൽ വീപ്പക്കുള്ളിൽ കണ്ടെത്തിയ ജഡം ഉദയം പേരൂർ സ്വദേശിനി ശകുന്തളയുടേതാണെന്ന് പോലീസ് സ്ഥിരീ കരിച്ചു

കുമ്പളം കായലിൽ വീപ്പയിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച നിലയിൽ കഴിഞ്ഞ ജനുവരി ഏഴിനാണ് മത്സൃതൊഴിലാളികൾ മൃതദേഹം കണ്ടെ ത്തിയത് പോലീസ് അന്വേഷണം ഊർജ്ജിതപ്പെടുത്തി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ്

പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ എ

പി പ്രവർത്തകന് പരി ക്കേറ്റു നാല് എസ്

പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു